ത റെഡ്സോണിൽ വരുന്ന കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മെയ് മൂന്ന് വരെ പൂർണ്ണ ലോക്ഡൌൺ ത സ്വകാര്യ വാഹനങ്ങൾക്ക് മറ്റന്നാൾ മുതൽ ഒറ്റ ഇരട്ട അക്ക നമ്പർ ക്രമീകരണം

രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് ജില്ലയിലെ ഒരാൾക്ക് മാത്രം ത ലോക്ഡൌണിന് ശേഷം രാജ്യത്ത് കോവിഡ് രോഗ ബാധ ഇരട്ടിയാകുന്നതിന്റെ നിരക്ക് കുറഞ്ഞതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

വാർത്തകൾ വിശദമായി കോവിഡ് രോഗ നിയന്ത്രണത്തിന് സംസ്ഥാനത്തെ നാല് മേഖലകളാക്കി തിരിച്ച് പുതിയ മാർഗ്ഗരേഖ ഗവൺമെന്റ് പുറത്തിറക്കി റെഡ് ഓറഞ്ച് എ ഓറഞ്ച് ബി ഗ്രീൻ വിഭാഗങ്ങളിലായാണ് ജില്ലകളെ തിരിച്ചത് കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളാണ് റെഡ്സോണിൽ ഈ ജില്ലകളിൽ മെയ് മൂന്ന് വരെ പൂർണ്ണമായ ലോക്ഡൌൺ ഏർപ്പെടുത്തും

അതിനുശേഷം ചെറിയ ഇളവുകൾ പരിഗണിയ്ക്കും

അതിനു ശേഷം ഇളവ് അനുവദിക്കും

തുടർന്ന് ഇളവുകൾ നൽകും കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ് വോയ്സ് രുമ ഹോട്ട്സ്പോട്ടുകളിലും രോഗം കൂടുതൽ ബാധിച്ച ജില്ലകളിലും പൂർണ്ണ പ്രതിരോധമൊരുക്കി കടുത്ത നിയന്ത്രണമുണ്ടാകും അവശ്യസേവനങ്ങളല്ലാതെ എല്ലാ നീക്കങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ നിയന്ത്രിക്കും അടിയന്തര പ്രാധാന്യമുള്ള യാത്രകളും ചരക്കുനീക്കവും മാത്രമേ അതിർത്തിയിൽ അനുവദിക്കൂ

ഹോട്ടൽ ടാക്സികൾ ഓട്ടോറിക്ഷകൾ സിനിമാഹാൾ മാളുകൾ ഷോപ്പിംഗ് കോംപ്ലക്സ് നീന്തൽകുളങ്ങൾ വിനോദകേന്ദ്രങ്ങൾ പാർക്കുകൾ തിയറ്റർ ബാർ ഓഡിറ്റോറിയം എന്നിവയുടെ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ട് ആരാധനാലയങ്ങളും അടച്ചിടും

റെഡ് വിഭാഗത്തിലെ ജില്ലകളിൽ ഹോട്ട്സ്പോട്ടുകളിലേക്ക് അവശ്യവസ്തുക്കളെത്തിക്കാൻ രണ്ട് എൻട്രി എക്സിറ്റ് പോയിന്റുകളാണ് ഉണ്ടാവുക

കാർഷിക പ്രവർത്തനങ്ങളും നടത്താൻ പ്ലാന്റേഷൻ മേഖലയ്ക്കും ഇളവുണ്ട് അഞ്ചിലധികം പേരിൽ കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയും അനുവദിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി രുഭ സ്വകാര്യ വാഹനങ്ങൾക്ക് ഒറ്റ ഇരട്ട അക്ക നമ്പർ ക്രമീകരണം മറ്റന്നാൾ മുതൽ ഏർപ്പെടുത്തും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഒറ്റ നമ്പർ വാഹനങ്ങൾക്കും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ഇരട്ട നമ്പർ വാഹനങ്ങൾക്കും യാത്രയ്ക്ക് അനുമതി നല്കും അടിയന്തര സേവന വിഭാഗത്തിലെ വാഹനങ്ങളെയും വനിതാ ഡ്രൈവർമാർ ഓടിക്കുന്ന വാഹനങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

ഇരുചക്ര വാഹനങ്ങളിൽ രണ്ട് കുടുംബാംഗത്തിന് പിന്നിലിരുന്ന് യാത്ര ചെയ്യാം യാത്രക്കാർ മാസ്കുകൾ ധരിക്കണം നിയന്ത്രണങ്ങൾ ഒഴിവാകുന്ന സ്ഥലങ്ങളിൽ കർശന വ്യവസ്ഥകൾക്ക് വിധേയമായി ബസ് യാത്ര അനുവദിക്കും

കാസർകോട് ജില്ലയിൽ ആറും എറണാകുളം ജില്ലയിൽ രണ്ടും ആലപ്പഴ മലപ്പുറം ജില്ലയിലെ ഓരോരുത്തരുമാണ് രോഗമുക്തി നേടിയത്

സംസ്ഥാനത്ത് നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണത്തിലും കുറവുവന്നു

രേര കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ രണ്ടാമത്തെയാൾക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു

ഒ ശശിധരൻ

ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ നൽകുന്ന റിപ്പോർട്ട്

നേരത്തെ മൂന്നുദിവസം കൂടുമ്പോൾ രോഗികളുടെ എണ്ണം ഇരട്ടിച്ചിരുന്നു

രുദ കോയമ്പത്തൂർ പാലക്കാട് ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ അഡ്മിറ്റ് ചെയ്യുന്നവരുടെ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ സാധിച്ചത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് മന്ത്രി എ

രുദ കൊല്ലം ജില്ലയിൽ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ സജീവമാക്കണമെന്ന് മന്ത്രി ജെ

അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം ഏഴ് ലക്ഷം കവിഞ്ഞു ദരദ രാജ്യത്ത് കൂടുതൽ രോഗികളുള്ള സംസ്ഥാനങ്ങൾക്കും ജില്ലകൾക്കുമായി അഞ്ചുലക്ഷം കോവിഡ് ദ്രുതപരിശോധനാ കിറ്റുകൾ വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

രുമ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പ്രകാരം സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡുകൾക്ക് ഈ മാസത്തെ സൌജന്യ റേഷൻ വിതരണം മറ്റന്നാൾ ആരംഭിക്കും